കെ ശൈലജ

മുരളീധരൻ മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് യു

ഇയിലേക്ക് പോകും

വീഡിയോ കോൺഫറൻസിംഗ് വഴി നടത്തിയ ചർച്ചയിൽ മുഖ്യമന്ത്രിമാരും ഉപമുഖ്യമന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുത്തു ബജറ്റിൽ ഉൾപ്പെടുത്തുന്നതിന് നിരവധി നിർദേശങ്ങൾ കേന്ദ്രധനമന്ത്രിക്ക് അവർ നൽകി അടുത്തമാസം ഒന്നിനാണ് ധനമന്ത്രി അടുത്ത സാമ്പത്തിക വർഷത്തെ ബജറ്റ് ലോക്സഭയിൽ അവതരിപ്പിക്കുന്നത്

കേരളത്തിലെ സ്റ്റാർട്ട് അപ്പുകളുടെ പ്രതിനിധികളുമായി തിരുവനന്തപുരത്ത് കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം

സ്റ്റാർട്ട് അപ്പുകൾക്ക് സഹായ ഫണ്ട് വർധിപ്പിക്കുന്നത് പരിശോധിക്കുമെന്നും ഉത്പന്നങ്ങൾക്ക് വിപണന സഹായം ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു

തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലും പുല്ലുവിള അഞ്ചുതെങ്ങ് എന്നിവിടങ്ങളിലെ സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങളിലും ഇന്ന് വാക്സിനേഷൻ കേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു

ആറു പേരാണ് രോഗം സ്ഥിരീകരിച്ച് കവരത്തി ദ്വീപിൽ ചികിത്സയിൽ കഴിയുന്നത് ആരുടേയും നില ഗുരുതരമല്ല

സാധ്യതാ പട്ടികയിലുള്ളവർ ഹോം ക്വാറന്റീനിലേക്ക് മാറണമെന്ന് ആരോഗ്യവകുപ്പ് നിർദേശം നൽകി രും പാലക്കാട് കോങ്ങാട് എം

എയും സി

കൊവിഡ് മുക്തനായ വിജയദാസ് തലച്ചോറിലെ രക്ത സ്രാവത്തെ തുടർന്ന് ത്വശൂർ മെഡിക്കൽ കോളജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു

പാലക്കാട് ജില്ലാ പഞ്ചായത്തിന്റെ പ്രഥമ ജില്ലാ പ്രസിഡന്റായിരുന്നു അദ്ദേഹം ലോകത്തിന് മാതൃകയായ മീൻവല്ലം ജലവൈദ്യുത പദ്ധതി വിജയദാസ് പ്രസിഡന്റായിരിക്കെയാണ് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കിയത്

കർഷക സംഘം ജില്ലാ പ്രസിഡന്റായ വിജയദാസ് സി

എം ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം കൂടിയാണ്

എം പാലക്കാട് ജില്ലാ കമ്മറ്റി ഓഫീസിൽ പൊതുദർശനത്തിനു വെച്ച ശേഷം ചന്ദ്രനഗർ വൈദ്യുത ശ്മശാനത്തിൽ സംസ്കരിക്കും

കർഷക പ്രസ്ഥാനത്തിനും കമ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും വലിയ നഷ്ടമാണ് അദ്ദേഹത്തിന്റെ അകാലവിയോഗമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു പാലക്കാട് ജില്ലയിൽ സി

എമ്മിന്റെ വളർച്ചയിൽ വലിയ സംഭാവന നൽകിയ നേതാവായിരുന്നു വിജയദാസെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നിയമസഭ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ മന്ത്രിമാരായ എ കെ ബാലൻ സി രവീന്ദ്രനാഥ് കെ രാജു തുടങ്ങിയവരും കെ വി വിജയദാസിന്റെ നിര്യാണത്തിൽ അനുശോചിച്ചു രുമ വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ മൂന്ന് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ന് യു എ

എ ഇ ഭരണാധികാരികളുമായും ഇന്ത്യൻ സമൂഹവുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും പരസ്പര താൽപര്യമുള്ള അന്താരാഷ്ട്ര ഉഭയകക്ഷി വിഷയങ്ങൾ യു

ഇ അധികൃതരുമായി മുരളീധരൻ ചർച്ച ചെയ്യും ഇന്ത്യൻ സമൂഹത്തിന്റെ പ്രത്യേകിച്ച് തൊഴിലാളികളുടെ ക്ഷേമവുമായി ബന്ധപ്പെട്ട വിവിധ പ്രശ്നങ്ങൾക്ക് സന്ദർശന കാലത്ത് വിദേശകാര്യ സഹമന്ത്രി പ്രത്യേക ശ്രദ്ധ നൽകും രും കർഷക സംഘടനകളുമായി കേന്ദ്ര ഗവൺമെന്റ് ഇന്ന് നടത്താനിരുന്ന പത്താംവട്ട ചർച്ച നാളത്തേക്ക് മാറ്റി അതിനിടെ സമരം ചെയ്യുന്ന കർഷകരുടെ പരാതികൾ കേൾക്കാൻ സുപ്രീം കോടതി നിയമിച്ച സമിതിയുടെ ആദ്യ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും

ചർച്ചകൾക്കായി സുപ്രീംകോടതി നിയമിച്ച നാലംഘ സമിതിയിൽ നിന്ന് രാജിവെച്ച ഭാരതീയ കിസാൻ യൂണിയന്റെ ഭൂപീന്ദർസിങ് മാൻ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കില്ല

നാല് ടെസ്റ്റ് പരമ്പരയിൽ ഓരോ മത്സരം ജയിച്ച് ഇന്ത്യയും ഓസ്ട്രേലിയയും സമനിലയിലാണ് ഇന്ന് കളിയിൽ വിജയിച്ചാലും സമനിലയിൽ ആയാലും ബോർഡർ ഗവാസ്കർ ട്രോഫി ഇന്ത്യക്ക് നിലനിർത്താനാകും രും സെയ്ദ് മുഷ്താഖ് അലി ട്രോഫി ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ കേരളം ഇന്ന് ഹരിയാനയെ നേരിടും

ഇന്ന് ഹരിയാനയെ തോൽപ്പിച്ചാൽ ഗ്രൂപ്പ് ചാംപ്യൻമാരായി കേരളത്തിന് ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിക്കാം

എൽ ഫുട്ബോളിൽ ചെന്നൈയിൻ എഫ്

സി ഒഡീഷ എഫ് സിയെ നേരിടും രുഭ ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷനും കേന്ദ്ര ഗോത്രവർഗ്ഗകാര്യ മന്ത്രാലയവും തമ്മിൽ ന്യൂഡൽഹിയിൽ ഇന്ന് രണ്ട് ധാരണ പത്രങ്ങളിൽ ഒപ്പു വെയ്ക്കും

രുഭ ഗോത്രവർഗ ഉപജീവനത്തിനായി ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിന് ട്രൈഫെഡും ഇന്ത്യൻ ഫാം ഫോറസ്ട്രി ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് ലിമിറ്റഡും ധാരണാ പത്രത്തിൽ ഒപ്പു വെച്ചു ആദിവാസി കരകൌശലത്തൊഴിലാളികൾക്കായി പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന് ഇരു സംഘടനകളും പരസ്പരം പങ്കാളികളാകുമെന്ന് ഗോത്രകാര്യ മന്ത്രാലയം അറിയിച്ചു രുര കാവ്യ ദർശനത്തെ രാഷ്ട്രീയ പ്രഖ്യാപനമാക്കിയ കവിയാണ് കുമാരനാശാനെന്ന് സ്പീക്കർ പി

സെന്റർ ഫോർ പാർലമെന്ററി സ്റ്റഡീസ് ആന്റ് ട്രെയിനിംഗും കുമാരനാശാൻ ദേശീയ സാംസ്കാരിക ഇൻസ്റ്റിറ്റ്യൂട്ടും സംയുക്തമായി നിയമസഭാ ലോഞ്ചിൽ സംഘടിപ്പിച്ച ആശാൻ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

ആശാൻ സാഹിത്യത്തിൽ ആഴത്തിൽ പഠനം നടത്തിയ പ്രൊഫ

കെ സാനുവിനെ ചടങ്ങിൽ ആദരിച്ചു രംഭ സ്ഥാനാർഥികളുടെ മരണത്തെ തുടർന്ന് തിരഞ്ഞെടുപ്പ് മാറ്റിവച്ച കൊല്ലം ജില്ലയിലെ പന്മന ഗ്രാമപഞ്ചായത്തിലെ രണ്ട് വാർഡുകളിൽ മറ്റന്നാൾ വോട്ടെടുപ്പ് നടക്കും പറമ്പിമുക്ക് ചോല വാർഡുകളിൽ ജില്ലാ കലക്ടർ മറ്റന്നാൾ പ്രദേശികാവധി പ്രഖ്യാപിച്ചു

രുര അടുത്ത സാമ്പത്തിക വർഷത്തെ പദ്ധതിരൂപീകരണത്തിന് മുന്നോടിയായി ഇടുക്കി ജില്ലയിലെ തദ്ദേശഭരണ സ്ഥാപന അധ്യക്ഷന്മാരുടെ യോഗം ഇന്ന് രാവിലെ ചേരും

രും കോവിഡിനെ തുടർന്ന് വരുമാന നഷ്ടം അനുവദിക്കുന്ന മലബാർ ദേവസ്വം ബോർഡിന് കീഴിലെ ക്ഷേത്ര ജീവനക്കാർക്ക് ശമ്പളം നൽകുന്നതിന് ഗവൺമെന്റ് അധിക ധസഹായമായി അനുവദിച്ച തുകയുടെ വിതരണോദ്ഘാടനം നാളെ നടക്കും